പൂർത്തിയാകും

അഭിജിത്തിന് നാടിന്റെ അന്ത്യാഞ്ജലി

വ്യാപാരികളുമായി നിരന്തരം ചർച്ച നടത്തണമെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്രം

കൊല്ലപ്പെട്ട മൂന്ന് ഭീകരവാദികളും ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകര സംഘടനയിൽ ഉള്ളവരാണെന്ന് ഡി ജി പി ദിൽബാഗ് സിംഗ് ആകാശവാണിയോട് പറഞ്ഞു ഹിസ്ബുൾ മുജാഹിദ്ദീൻ സംഘടനയുടെ കമാൻഡർ നസീർ ചദ്രുവും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായി അദ്ദേഹം അറിയിച്ചു പ്രദേശത്ത് നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഏറ്റുമുട്ടലിൽ ഒരു സൈനികന്റെ കാലിന് പരിക്കേറ്റതായി ഡി ജി പി അറിയിച്ചു മൂന്ന് തീവ്രവാദികൾ പസൽപോറ ബിജ്ബെഹ്റ പ്രദേശത്ത് നുഴഞ്ഞ് കയറിയതായി പിവരം ലഭിച്ചതിനെ തുടർന്നാണ് സൂരക്ഷാ സേനകൾ സംയുക്ത സൈനിക നടപടി ആരംഭിച്ചത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പൊതുജനങ്ങൾക്ക് സൌജന്യമായി പ്പിട്ട്ലിഫോൺ സൌകര്യം ലഭ്യമാക്കാനാണ് പൊതു കോശ്ശ് ക്ടാഫീസുകൾ ആരംഭിക്കുന്നത്

എസ് എൻ എൽ ആയിരിക്കും പൊതുജനങ്ങൾക്ക് ടെലഫോൺ സേവനങ്ങൾ സൌജന്യമായി ലഭ്യമാക്കുക

എക്സ് മീഡിയ അഴിമതി കേസിൽ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പി

തീഹാർ ജയിലിൽ ഐ

എക്സ് മീഡിയ കേസുമായി ബന്ധപ്പെട്ട ചോദൃം ചെയ്യലിന് ശേഷമായിരുന്നു അറസ്റ്റ് തീഹാർ ജയിലിൽ കഴിയുന്ന ചിദംബരത്തെ ഇന്ന് മൂന്ന് പേരടങ്ങുന്ന എൻഫോഴ്സ്മെന്റ് സംഘമാണ് ചോദ്യം ചെയ്തത്

ബി

കസ്റ്റഡിയിൽ കഴിയുകയായിരുന്നു ചിദംബരം

വസ്തുതകളുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് ചരിത്ര ആർക്കിയോളജിക്കൽ സർവ്വെ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തലുകളും വഖഫ് ബോർഡ് കോടതിക്ക് മുമ്പാകെ വച്ചിട്ടുണ്ട്

ഇടയം ഗവൺമെന്റ് എൽ

സ്കൂളിലും വീടിന് സമീപത്തെ ശ്രീനാരായണ ഹാളിലും പൊതുദർശനത്തിന് വച്ച ഭൌതികദേഹത്തിൽ വൻപൌരാവലി അന്തിമോപചാരം അർപ്പിച്ചു മന്ത്രി കെ രാജു മുല്ലക്കര രത്നാകരൻ എം എൽ എ കൊല്ലം ജില്ലാ കളക്ടർ എന്നിവരും സംസ്കാരച്ചടങ്ങുകളിൽ പങ്കെടുത്തു തിങ്കളാഴ്ച പുലർച്ചെ കാശ്മീരിലെ ബാരാമുള്ളയിലുായ കുഴിബോംബ് സ്ഫോടനത്തിലാണ് അഭിജിത്ത് കൊല്ലപ്പെട്ടത്

ജില്ലാ ഭരണകൂടത്തിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും സംയുക്ത യോഗത്തിലാണ് ഇതുസംബന്ധിച്ച തീരുമാനം

ഫ്ളാറ്റുടമകൾക്ക് നഷ്ടപരിഹാരം നിർമാതാക്കളിൽനിന്ന് തന്നെ ഈടാക്കി നൽകാമെന്ന സുപ്രീംകോടതി വിധിയിലെ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലാണ് സ്വത്ത് കുകെട്ടൽ നടപടി

തുടർനടപടികൾ തീരുമാനിക്കാൻ ഇന്ന് റവന്യൂ വകുപ്പിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും സംയുക്ത യോഗം കൊച്ചിയിൽ ചേരുന്നുണ്ട്

പരസ്യപ്രചാരണം അമ്പസ്ക്കിക്കുന്നത് മുതൽ വോട്ടെടുപ്പ് പൂർത്തിയാകുന്നത് വരെയുള്ള തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കൃ വിവരങ്ങളോ അഭിപ്രായ സർവ്വേകൾ അടക്കമുള്ള കാര്യങ്ങള്ള് ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തുന്നതും തെർണ്ഞെടുപ്പ് കമ്മീഷൻ നിരോധിച്ചിട്ടുണ്ട്

വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവം കൂടുതൽ വിവരങ്ങളുമായി സോഫിയ

നേതാവ് ദുഷ്യന്ത് ചൌട്ടാലയും ഐ

നേതാവ് അജയ് ചൌട്ടാലയും ഇന്ന് തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വക്താവ് ആനന്ദ് ശർമ ചണ്ഡിഗഡിൽ ഇന്ന് മാധ്യമങ്ങളെ കാണും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിൽ മൂന്ന് റാലികളിൽ പങ്കെടുക്കുന്നു് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉൾപ്പെടെയുള്ള നേത്രാക്കൾ പ്രധാനമന്ത്രിയ്ക്ക് ഒപ്പം റാലിയിൽ പങ്കെടുക്കും എൻസിപ്പി നേതാവ് ശരത് പവാറും നവി മുംബൈയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കും മഹാരാഷ്ട്ര നവ നിർമാൺ സെന അധ്യക്ഷൻ രാജ് താക്കറെ നാസിക്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും

ന്യൂഡൽഹിയിൽ ഉപഭോക്തൃകാര്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പൂഴ്ത്തിവയ്പ്പ് കരിഞ്ചന്ത ഊഹകച്ചവടം എന്നിവ തടയുന്നതിനായി ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം ഖാരിഫ് വിളയുടെ ഭാഗമായി ഉള്ളികൾ ലഭ്യമായി തുടങ്ങിയതായും തന്മൂലം വില കുറഞ്ഞു വരുന്നതായും കാർഷിക മന്ത്രാലയം അറിയിച്ചു വരും ദിവസങ്ങളിൽ ഉള്ളിയുടെ വരവ് വീും ഉയരുമെന്നും മന്ത്രാലയം വൃക്തമാക്കി

ഇൻഡോ ഭൂട്ടാൻ അതിർത്തിയിലെ കൊക്രജാർ ജില്ലയിൽ റിപ്പൂ റിസേർവ് വനത്തിൽ നിന്നാണ് ഇവർ പിടിയിലായത് തീവ്രവാദികളെ കുറിച്ചുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് സൈന്യവും പൊലീസും സംയുക്ത തിരച്ചിൽ നടത്തുകയായിരുന്നു

തിരുവനന്തപുരം ഷില്ലോങ് പൂനെ മുംബൈ ഇൻഡോർ ഹൈദരാബാദ് ഡൽഹി ചെന്നൈ ചണ്ഡിഗഡ് എന്നീ ഒമ്പത് നഗരങ്ങളിലാണ് ഇവ സ്ഥാപിക്കുക അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നൈപുണ്യ പരിശീലനമാണ് ഇവയിലൂടെ ലക്ഷ്യമിടുന്നത്

പ്രിയ രാജൃതലസ്ഥാനമായ ന്യൂഡർഹിയിൽ വായുവിന്റെ ഗുണനിലവാരം മോശമാകുന്നത് മാരക്ടമായ രോഗങ്ങൾക്ക് കാരണമാകുന്നതിനെ തുടർന്നാണ് ദേശീയ ഹരീത ട്രിബ്യൂണൽ ഉത്തർപ്രദേശ് ഹരിയാന പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് അതേസമയം കാർഷികാവശിഷ്ടങ്ങൾ നശിപ്പിക്കാനുള്ള ഉപകരണങ്ങൾ കർഷകർക്ക് ലഭൃമാകാത്തിൽ ഹരിത ട്രിബ്യൂണൽ ചെയർപേഴ്സൺ ആശങ്ക പ്രകടിപ്പിച്ചു

നാളെ മുതൽ ഞായറാഴ്ച വരെ വിവിധ ജില്ലകളിൽ മൂന്നംഗ വനിതകളടങ്ങുന്ന സംഘം സന്ദർശനം നടത്തുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചു ലക്നൌവിൽ വനിതാ നോഡൽ ഓഫീസർമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

ബംഗളുരുവിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബംഗളുരുവിൽ തീവ്രവാദ സംഘടനകളുടെ ഇരുപതോളം പ്രവർത്തകർ ഉണ്ടെന്ന എൻ ഐ എ യുടെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സ്കാഡ് രൂപീകരിക്കുന്നതെന്ന് ശ്രീ ബസവരാജ് ബൊമ്മൈ അറിയിച്ചു

ശ്രീലങ്കൻ തമിഴരുടെ പ്രശ്നങ്ങൾക്കുള്ള രാഷ്ട്രീയ പരിഹാരം എൽ ടി ടി ഇ യ്ക്ക് എതിരായ സൈനിക നടപടികളുടെ ഭാഗമായുണ്ടായ യുദ്ധ കുറ്റകൃത്യങ്ങളിൽ നടപടി എന്നിവ ഈ നിർദ്ദേശങ്ങളുടെ ഭാഗമാണ് ശ്രീലങ്കയിലെ തീവ്രവാദ നിരോധന നിയമം റദ്ദാക്കണമെന്ന ആവശ്യവും പട്ടികയിലുണ്ട്ട്

ഇന്തോനേഷ്യയുടെ ഗ്രിഗോറിയ മരിസ്ക്കയെ പരാജയപ്പെടുത്തിയാണ് സിന്ധു രണ്ടാം റൌണ്ടിൽ കടന്നത് നേരിട്ടുള്ള ഗെയിമുകൾക്കായിരുന്നു ജയം